നോക്കാതെ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്

നിയമസഭയിൽ പ്രതിപക്ഷി ബ്ഹളവും ഇറങ്ങിപ്പോക്കും സഭ ഇന്ന്ത്തേക്ക് പിരിഞ്ഞു

പരിപാടികൾ ഒരുക്കുന്നതിനും ദൂരദർശൻ ഊന്നൽ നൽകണമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി

അസ്വാഭാവികതയില്ലെന്ന് ദുബായ് പോലീസിന്റെ റിപ്പോർട്ട്

പ്രതികളെല്ലാം പിടിയിലായി

ഇപ്പോൾ പിടിയിലായത് ഡമ്മി പ്രതികളാണെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷത്തെ സണ്ണി ജോസഫാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കൊന്നവരെ മാത്രമല്ല ഗൂഢാലോചനയിൽ പങ്കെടുത്ത് കൊല്ലിച്ചവരെയും പിടികൂടണമെന്നും ശ്രീ

പോലീസിൽ നിന്ന് രഹസ്യങ്ങൾ ചോരുന്നുവെന്ന് ഐ ജി തന്നെ വ്യക്തമാക്കിയത് അതീവ ഗുരുതരമാണെന്നും അതിനാൽ കേന്ദ്ര ഏജൻസിയെകൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നും പ്രതിപക്ഷ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു പ്രതികൾക്കെതിരെ യു

ഐ എ പ്രകാരം ്കേസ്റ്റെക്കാത്തത് അവരെ സംരക്ഷിക്കാനാണെന്നും ശ്രീ

സ്പീക്കർ ്സ്ട്രാ ്നടപടികൾ തുടരാൻ തീരുമാനിച്ചതോടെ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് മുന്നില്ലെത്തി മുദ്രാവാക്യം മുഴക്കി

പ്തക്കാർഡുകളുമായി സഭയ്ക്ക് പുറത്തുവന്ന പ്രതിപക്ഷം പിന്നീട് സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു

പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ സ്പീക്കർക്ക് ചോദ്യോത്തരവേള റദ്ദാക്കേണ്ടി വന്നു മണ്ണാർക്കാട് യൂത്ത് ലീഗ് പ്രവർത്തകന്റെ കൊലപാതകവും അട്ടപ്പാടിയിലെ മധുവിന്റെ മരണവും പ്രതിപക്ഷം ഉന്നവിച്ചു

സഭാധ്യക്ഷന്റെ മുഖം ്മറ്ച്ചുളള പ്രതിഷേധം സഭയോടുളള അവഹേളനമാണ്ണെന്നും ഒരു കാരണവശാലും ഇത് ആവർത്തിക്കാൻ പാടില്ലെന്ന് സ്പീക്കർ പി

വീടുകളുടെ ജനലുകളിൽ സ്റ്റിക്കറുകൾ പതിക്കുന്നുവെന്ന പേരിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുളളതാണെന്ന് ഇതേവരെയുളള അന്വേഷണത്തിൽ വെളിവായിട്ടില്ല എന്നും ശ്രീ പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തിയുള്ള വ്യാജ പ്രചാരണമാണ് സമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി

ബി ഐ അന്വേഷണം നടത്തില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊലീസിന് നേരെ കല്ലെറിഞ്ഞതോടെയാണ് സംഘർഷത്തിന് തുടക്കം തുടർന്ന് പൊലീസിന് നേരെ കല്ലും കുപ്പിച്ചില്ലുകളും വലിച്ചെറിഞ്ഞ പ്രവർത്തകരെ നേരിടാൻ പോലീസ് കണ്ണീർ വാതകവും ഗ്രനേഡും പ്രയോഗിച്ചു ടടടടടടടടടടടടട മണ്ണാർക്കാട് കൊലപാതകം മണ്ണാർക്കാട് യൂത്ത് ലീഗ് പ്രവർത്തകനായ സഫീറിനെ കുത്തിക്കൊലപ്പെടുത്തിയ നിഷ്ഠൂര സംഭവം അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി

ഷുഹൈബിനെ കൊലപ്പെടുത്തിയതിന്റെ ആഘാതത്തിൽ നിന്നും കേരളം മുക്തമാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു കൊലപാതകമുണ്ടായത് ക്രമസമാധാന നിലയുടെ സമ്പൂർണ്ണ തകർച്ചയാണ് വ്യക്തമാക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി ദയനീയ പരാജയമാണെന്ന പൊതുവികാരം ഇതോടെ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കണെന്ന് ശ്രീ സുധീരൻ പ്രസ്താവനയിൽ പറഞ്ഞു

കുന്തിപ്പുഴ നമ്പിയൻകുന്ന് സ്വദേശികളായ ഇവർ സഫീറിന്റെ അയൽവാസികളാണെന്നും വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് ക്യാര്ണ്മെന്നു പോലീസ് പറഞ്ഞു ഇന്നലെ രാത്രി കോട്ടതിപ്പടിയിലെ തുണിക്കടയിൽ വച്ചാണ് സഫീറിനെ കുത്തികൊലപ്പെടുത്തിയത് സംഭവത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം് ലീഗ് മണ്ണാർക്കാട് മണ്ഡലത്തിൽ പകൽ ഹർത്താൽ നടത്തി പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്

ദൂരദർശൻ സൌജന്യ ഡിഷിലൂടെ ഇത് സാധ്യമാക്കണമെന്നും അവർ പറഞ്ഞു

ആറ്റുകാൽ പ്പൊങ്കാലയ്ക്ക് മുന്നോടിയായി തിരുവനന്തപുരം നിക്ര്ത്തിലെ ആൾനുഴികൾ ശുചീകരണത്തിന് ബാൻഡിക്കൂട്ട് എന്ന യന്ത്രമനുഷ്യനെ പ്രയോജനിപ്പെടുത്തും

വരും ദിവസങ്ങളിലും നഗരത്തിൽ കർശന പരിശോധന തുടരും പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അന്നദാനവും ശീതള പാനീയവും വിതരണം ചെയ്യുന്നവർക്ക് ഭക്ഷ്യ സുരക്ഷ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്

പിഴപ്പലിശ പൂർണമായി ഒഴിവാക്കും

ന്യൂസ് ഡെസ്ക് ആക്ാശവാണി

അപകട മരണമാണെന്ന് വ്യക്തമായതോടെ ദുബായ് പോലീസ് ശ്രീദേവിയുടെ പാസ്പോർട്ട് റദ്ദാക്കി മരണ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നടപടി തുടങ്ങി നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം എംബാം ചെയ്ത ശേഷമാകും ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക നാളെ സംസ്കാരം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ

ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ് ഇവർ ദുബായിൽ എത്തിയത്

സംഭൂവ്ത്തിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാർണ് സമരം അവസാനിപ്പിച്ചത്

ഇതു സംബന്ധിച്ച് വിവിധ സാമൂദായിക സംഘടന നേതാക്കൾ തൃശ്ശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് നിവേദനം നൽകി

പ്രൈസ് മണി കഴിഞ്ഞ അഞ്ചുവർഷമായി മുടങ്ങിയിരുന്നു

മാസാഗാല സോക്കർ എന്നു പേരിട്ടിരിക്കുന്ന ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാട്ട്നം മുൻ ഇന്ത്യൻ താരം കാൽട്ടൻ ചാപ്മാൻ നിർവഹിച്ചു്

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സഹകരണവകുപ്പുമായി ചേർന്നാണ് മേള ഒരുക്കുന്നത്

ഇന്ത്യയിലും വിദേശത്തുമുള്ള എൺപതോളം പ്രസാധകർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്

ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നടപ്പാക്കുന്നതിനുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ്ണയിൽ നൂറോളം പേർ പങ്കെടുത്തു ടടടടടടടടടടടടടട സമാപന സമ്മേളനം റാന്നി തത്വങ്ങളെ തിരിച്ചുറിയാത്തതാണ് അനാചാരങ്ങളായി മാറുന്നതെന്നും ധർമ്മത്തിന്റെ യഥാർത്ഥ തത്വങ്ങൾ വ്യക്തികളിലേക്ക് സന്നിവേശിപ്പിക്കണമെന്നും കണ്ണൂർ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദ പുരി പറഞ്ഞു റാന്നിയിൽ ഹിന്ദു സമ്മേളനത്തിന്റെ സമാപന സമ്മേളന്ം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

വിദ്യാധരൻ അറിയിച്ചു